ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണ കരാറുകളും ഒപ്പിടും അന്താരാഷ്ട്ര സോളാർ സഹകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചട്ടക്കൂട് പുനഃപരിശോധിക്കുവാനുള്ള അവസരമായിരിക്കും കൂടിക്കാഴ്ചയെന്ന് വിലയിരുത്തപ്പെടുന്നു ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ആഴത്തിലുള്ളതും ശക്തമായ ബന്ധവും സഹകരണവും വികസിപ്പിക്കാൻ കൂടിക്കാഴ്ച വേദിയാകും

്രമേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിരവധി കമ്പനികളും ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട്

ബില്ലിൽ ഒപ്പ് വെക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിന് അംഗീകാരം നൽകിയത് ജമ്മു കശ്മീരിലെ ഔദ്യോഗിക ഭാഷാ ബില്ലിലും രാഷ്ട്രപതി ഒപ്പു വെച്ചു ബില്ലിന്റെ അവതരണത്തിനിടെ രാജ്യസഭയിൽ അപമര്യാദയായി പെരുമാറിയ എട്ട് എം

മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല ചരിത്രപരമായ നിയമ നിർമാണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബില്ലിനെ വിശേഷിപ്പിച്ചത്

കാർഷികോൽപ്പന്ന സംഭരണത്തിന്റെ ചുമതലയുള്ള ദ്ദേശീയ സഹകരണ വികസന കോർപറേഷൻ മുഖേനയാണ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൈമാറുക നെല്ല് സ്ഭർണ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാനങ്ങളെയും സാസ്ഥാന മാർക്കറ്റിംഗ് ഫെഡറേഷനുകളെയും സഹായിക്കുന്നതിനാണ് ഈ തുക അനുവദിച്ചതെന്ന് കേന്ദ്രകൃഷി മന്ത്രാലയം അറിയിച്ചു

കോവിഡ് പകർച്ചുവ്യാധിയുടെ സമയത്ത് ദേശീയ സഹകരണവികസന കോർപറേഷൻ മുഖേന രാജ്യത്തെ കർഷകർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ആഹ്വാനം കണക്കിലെടുത്ത് കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട പിന്തുണനൽകുമെന്ന് കോർപറേഷൻ എം ഡി സുന്ദീപ് നായ്ക് പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

സാമൂഹൃമാധൃമങ്ങളുമായി ഇന്നലെ നടത്തിയ സംവാദപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് തുടരേണ്ടതുണ്ട് ഉടൻ പ്രകാശനം ചെയ്യുന്ന രണ്ടാമ ത്തെ സീറോ സർവേ റിപ്പോർട്ടും ഇക്കാരൃം ശുപാർശ ചെയ്തിട്ടുണ്ടെ ന്നും അദ്ദേഹം വൃക്തമാക്കി ഒരിക്കൽ ഉവെറസ് പിടിപെട്ട ആളിന് രണ്ടാമത് കോവിഡ് ബാധിക്കാനുള്ളൂ സാധ്യത വിരളമാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ ഗ്രദ്വേഷണ കേന്ദ്രം ഗവേഷണ പഠനങ്ങൾ നടത്തി വരികയാണ്ണിന്നും ശ്രീ ഹർഷ് വർധൻ പറഞ്ഞു

ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോശ ജൈവതന്മാത്രാ പഠനകേന്ദ്രം ഡയറക്ടർ ഡോ രാകേഷ് കെ

മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണനിരക്ക് വളരെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിനിടെ ഇന്ത്യയിലെ കോവിഡ് പരിശോധനയിൽ വർധനവാണ് രേഖപ്പെടുത്തുന്നത്

സ്വാതന്ത്ര്യസമരത്തിന് ഭഗത് സിംഗ് നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് ശ്രീ മോദി പറഞ്ഞു ഭഗത് സിംഗിന്റെ ഇച്ഛാശക്തിയും ധൈര്യവും അചഞ്ചലമാ ണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

നിലവിലുള്ള നിയമം അതിന് പരൃാപ്തമല്ല എങ്കിൽ തക്കതായ നിയമ നിർമാണം ആലോചിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം തലസ്ഥാന ത്തുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്ത്രീകൾക്കെതിരെ ഹീനമായ അധിക്ഷേപം ചൊരിഞ്ഞതിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു

തുടർന്ന് പുതിയ പാലം ഡിഎംആർസിയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി നിർമിക്കും

കോവിഡ് പ്രതിസ്ന്ധിയും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രളയക്കെടുതിയും കണക്കിലെടുത്ത് ആദ്യഘട്ട പ്രവേശന പരീക്ഷ രണ്ടോ മൂന്നോമാസത്തേക്ക് മാറ്റിവയ്ക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം അടുത്ത മാസം നാലിനാണ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്

ഗ്രാമത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സൂരക്ഷാ സേനയുടെ സംയുക്ത സംഘം പ്രദേശത്തു സമഗ്രമായ തിരച്ചിൽ നടത്തുകയായിരുന്നു തുടന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്

ഇതിന്റെ ഭാഗമായി സായിയുടെ ദേശീയ എക്സലൻസ് സെന്ററുകളിൽ ടോക്കിയോ ഒളിമ്പിക്സിനോട് അനുബന്ധിച്ചുള്ള പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളൂടെ പരിശീലനം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായികതാരങ്ങളുടെ പരിശീലനം ജൂണ്ടിൽ ത്ന്നെ ആരംഭിച്ചിരുന്നു

നൂറോളം പേർക്ക് പരിക്കേറ്റു തർക്കമേഖലയായ നാഗോർണോ കരാബാക്കിനെച്ചൊല്ലിയാണ് അർമേനിയയും അസർബെയ്ജാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലുണ്ടായത് അർമേനിയ പട്ടാളനിയമം പ്രഖ്യാപിക്കുകയും പൂർണതോതിലുള്ള സൈനിക വിന്യാസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്

ജാരൽ ഡെൽ പ്രോഗ്രെസോ പട്ടണത്തിനടുത്തുള്ള ബാറിലാണ് സംഭവമുണ്ടായത് ബാറിലേക്ക് ഇരച്ചെത്തിയ ആയുധധാരികൾ നിറയൊഴിക്കുകയായിരുന്നു